കുടുംബ നിയമ പരിഷ്ക്കരണം സംബന്ധിച്ച ഭേദഗതികൾ ന് നിയമ കമ്മിഷൻ ശുപാർശ ചെയ്തു

ഭാഗമായി കേരളത്തിന്റെ വാർഷിക പദ്ധതിയിൽ മാറ്റം വരുത്തുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്ക്

പിപിധ ഇനങ്ങളിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ ഇന്ന് ഫൈനലിൽ മൽസരിക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ തൽക്കത്തോറാ സ്റ്റേഡിയത്തിൽ ഐ

ബി യുടെ ഉദ്ഘാടനം നിർവ്വഹിക്കും കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

ഇതോട്ടെ ഏറ്റവും കൂടുതൽ ബാങ്ക് ശാഖകളുള്ള രാജ്യം എന്ന ബഹുമതിയും ഇന്ത്യക്ക് കൈവരും

രാജ്യത്തെ ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാകുമെന്നതാണ് മറ്റൊരു നേട്ടം അത്യാധുനിക സേവനങ്ങൾ നൽകാൻ സജ്ജമായാണ് പോസ്റ്റ് ബാങ്ക് ആരംഭിക്കുന്നത് കൌണ്ടർ സേവനങ്ങൾക്കു പുറമെ ഡിജിറ്റൽ സേവനങ്ങളും മൊബൈൽ ആപ് സൌകര്യങ്ങളും ഉണ്ടായിരിക്കും

മിനിമം ബാലൻസ് നിബന്ധന ഇല്ല അക്കൌണ്ട് ഉടമകൾക്ക് ലഭിക്കുന്ന ക്യൂ ആർ കോഡ് തപാൽ ബാങ്കിന്റെ മറ്റൊരു സവിശേഷതയാണ് ബയോ മെട്രിക് കാർഡായതിനാൽ കാർഡ് നഷ്ടപ്പെട്ടാലും അക്കൌണ്ടിലെ പണം സുരക്ഷിതമായിരിക്കും

സുപ്രീം കോടതി അഡക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ നിയമ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ കോൺഫറൻസ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷത വഹിക്കും വിദ്യാർത്ഥികൾ ഗവേഷകർ തുടങ്ങിയവർ പങ്കെടുക്കും

കുടുംബ നിയമം മതേതര വ്യക്തി നിയമങ്ങൾ എന്നിവ സംബന്ധിച്ച് ഒട്ടേറെ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളും കമ്മിഷൻ സമർപ്പിച്ചിട്ടുള്ളതായി നിയമ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഭേദഗതികളായും പുതിയ നിർദ്ദേശങ്ങളായും ഒട്ടേറെ പരിഷ്ക്കാരങ്ങൾ കമ്മിഷൻ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്

എൻഡിഎ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളാണ് ആഭ്യന്തര ഉല്പാദന വളർച്ചയിൽ പ്രതിഫലിച്ചതെന്ന് ധനകാര്യ സെക്രട്ടറി ഹസ്മുഖ് ആദ്യ പറഞ്ഞു ജി എസ് ടി പരിഷ്ക്കരണം സാമ്പത്തിക മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്

നിലവിലുള്ള വളർച്ചാ നിരക്കിനെ ത്വരിതപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടാകുമെന്നും ധനമന്ത്രാലയം സൂചന നൽകി

കുറച്ചു ദിവസങ്ങളായി മരുന്നുകളൊന്നും കഴിച്ചിരുന്നില്ല

കദ്വെ പ്രവചൻ എന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം പ്രശസ്തമാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തരുൺ സാഗറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു

ബജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്ന പദ്ധതികളിൽ അടിയന്തിര പ്രാധാനൃമുള്ളവ മാത്രം പരിഗ്ണിക്കും

വിവിധ വകുപ്പുകൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത്രിനും വകുപ്പ് മേധാവികൾക്ക് കാറുകൾ വാങ്ങുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും

ഒക്ടോബർ ഒന്നിനും അഞ്ചിനും ഇടയിലായി നാല് ഘട്ടങ്ങളിലായി മുൻസിപ്പൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നടക്കും നവംബർ എട്ടിനും ഡിസംബർ നാലിനും മദ്ധ്യേ എട്ട് ഘട്ടങ്ങളിലായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും നടക്കും സംസ്ഥാന ഗവർണ്ണർ സത്യപാൽ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണകൌൺസിൽ വിവിധ വകുപ്പുകളുമായി വിശദമായ കൂടിയാലോചനകൾ നടത്തി സുരക്ഷയും തെരഞ്ഞെടുപ്പ് അത്യാവശ്യങ്ങളും മുന്നിൽക്കണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ സജ്ജമാക്കാൻ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടു അപകട സാധ്യത കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് ജോലികൾ നിർവ്വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ഒരു മാസത്തെ വേതനം നൽകാനു് സംസ്ഥാന ഭരണ കൌൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്

ബിജെപിക്ക് ഒരു സീറ്റും ലഭിച്ചു

പ്രാദേശിക സമൂഹങ്ങൾക്ക് ഉപജീവനമാർഗങ്ങൾ ലഭ്യമാക്കുന്നതാണ് നയത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വിനോദ സഞ്ചാരികൾക്ക് ബോധവൽക്കരണം നൽകുകയും അവർക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രാദേശിക സമൂഹങ്ങളുടെ ശേഷി വികസനത്തിനായി പ്രത്യേകമായ പരിശീലനം നൽകുമെന്നും പരിസ്ഥിതി മന്ത്രി ഹർഷ് വർദ്ധൻ പറഞ്ഞു

നെതർലാൻഡ്സിലെ മഹാറിഷി ആയുർവേദ ഫൌണ്ടേഷൻ ന്യൂഡൽഹിയിലെ ആൾ ഇന്ത്യ ആയുർവേദിക് കോൺഗ്രസ് പൂനെയിലെ ഇന്റർ നാഷണൽ അക്കാദമി ഓഫ് ആയുർവേദ എന്നിവരുടെ കൂടി പങ്കാളിത്തതോടെയാണ് സമ്മേളനം നടക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

മിക്സഡ് ജൂഡോയിൽ ഓപ്പൺ മൽസരത്തിൽ നേപ്പാളിനെതിരെ വിജയിച്ച ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ കസാഖിസ്ഥാനോടു പരാജയപ്പെട്ടു

പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡലിനായി ഇന്ത്യ ഇന്ന് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും

ഇന്ന് പുലർച്ചെ സേലം ബംഗളൂരു ദേശീയപാതയിലായിരുന്നു അപകടം